ചരിത്ര നിമിഷത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം

ശാസ്ത്രീയമായി മാത്രം നടത്തിയാൽ മതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് ഗവർണറുടെ പത്നി രേഷ്മാ ആരിഫ് മന്ത്രിമാർ വിശിഷ്ടവ്യക്തികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു

ചരിത്ര നിമിഷത്തിനായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് ഐ

യിലെ ടെലിമെട്രി സാറ്റലൈറ്റ് കൺട്രോൾ സെന്ററിലെയും ട്രാക്കിങ് ആന്റ് കമാൻഡ് നെറ്റ്വർക്കിലെയും ശാസ്ത്രജ്ഞർ

ദൌത്യം വിജയമായാൽ ചന്ദ്രന്റെ ദക്ഷിണദ്രുവത്തിലിറങ്ങുന്ന ആദ്യ രാജ്യമാകും ഇന്ത്യ

ഫ്ളാറ്റുകൾ പൊളിച്ച് നീക്കി ഒരുമാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഗവൺമെന്റ് റിപ്പോർട്ട് നൽകാത്ത സാഹചര്യത്തിൽ സ്വമേധയ കേസ് പരിഗണിക്കാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു

ബീച്ച് വാഷ് പൂർണമായി നിർത്തേണ്ടതില്ല ശാസ്ത്രീയമായി എടുക്കാൻ പറ്റുന്ന കരിമ്ണൂർ എടുക്കണമെന്നാണ് നിയമസഭാ സമിതിയും അഭിപ്രായപ്പെട്ടത്

ജലീൽ നിർവഹിക്കും

സിവിൽ സപ്ളൈസ്് കോർപ്പറേഷന്റെ സ്റ്റോറുകളിൽ ഒരു ഘട്ടത്തിലും വില വർധ്വീക്ക്തെയാണ് ഇവ ലഭ്യമാക്കുന്നത് ഇൌ കുറെക്കൂടി ഫലപ്രദമാക്കാനാണ് ഇടപെടൽ ഗവൺമെന്റ് ആലോചിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ബംഗാൾ ഉൾക്കടലിൽ ഒഡിഷയ്ക്കടുത്ത് രൂപപ്പെട്ട ന്യൂനമർദമാണ് കാലവർഷം വീണ്ടും സജീവമാകാൻ കാരണം മഴ ശക്തമായതിനെ തുടർന്ന് സംസ്ഥാനത്ത് മിക്ക അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയർന്നു

മണലിപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രത്യിർദ്ദേശം നൽകിയിട്ടുണ്ട്

മംഗലം കാഞ്ഞിരപ്പുഴ വാളയാർ ഡാമുകളുടെ ഷട്ടറുകളും കൂടുതൽ ഉയർത്തിയിട്ടുണ്ട്

അട്ടപ്പാടി മേഖലയിലും കനത്ത മഴയാണ് ലഭിക്കുന്നത് ശിരുവാണി ഭവാനി പുഴകളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് മഴ തുടർന്നാൽ അപ്പർ ഭവാനി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാനും സാധ്യതയുണ്ട്

കാര്യവട്ടം സ്പോർട്സ് ഹബ്ബിൽ നടക്കേണ്ട മൽസരം മഴയെ തുടർന്ന് ഇതുവരെ ആരംഭിച്ചിട്ടില്ല